ജെ

പ്രമുഖ സ്പോട്സ് കമന്റേറ്റർ ജസ്ദേവ് സിംഗ് അന്തരിച്ചു

സമഗ്ര മാനവികതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഏക രാഷ്ട്രീയ കക്ഷിയാണ് ബിജെ പി എന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുയായിരുന്നു പ്രധാനമന്ത്രി ജനസംഘ് സഹസ്ഥാപകനും പാർട്ടി താത്വിക ആചാര്യനുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സമ്മേഴ്ളൂനം സംഘടിപ്പിച്ചത് പത്ത് അംഗങ്ങളുമായി തുടങ്ങിയ ബ്യൂ ജെ പി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയ്ക്കിന്ന് സമ്മേളനത്തിൽ സംസാരിച്ച പാർട്ടി അധ്യക്ഷൻ അമീത്ഷാ പറഞ്ഞു

ന്യൂഡൽഹിയിൽ നടന്ന പൊതുമേഖലാ ബാങ്കുകളുടെ വാർഷിക അവലോകന യോഗത്തിൽ ഉന്നതതല ബാങ്ക് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി

ഈ വിശ്വാസം കൊണ്ടു മാത്രമേ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ ആവശ്യങ്ങൾ പൂർത്തികരിക്കാൻ കഴിയുക്കുന്ന് ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു വളരുന്ന സമ്പദ്വ്യവസ്ഥ ഏക്കൊരു രാജ്യത്തെയും ബാങ്കുകളുടെ വളർച്ചയ്ക്ക് വഴിത്തളിക്കും പകരം സമ്പദ്ഘടനയുടെ വായ്പാ ആവശ്യങ്ങൾക്ക് സ്ട്രേക്ഷണം നല്കാൻ ഉതകുന്ന രീതിയിൽ തങ്ങളുടെ ശ്യേഷി വർധിപ്പിക്കാൻ ബാങ്കുകളും തയ്യാറാവണം ഇന്ത്യൻ സൂമ്പദ്വ്യവസ്ഥയുടെ സാമ്പത്തികമായ ഉൾച്ചേർക്ക ലിൽ അധിഷ്ഠിതമായ ഏകീകരണത്തിലൂടെ രാജ്യത്തിന്റെ വാങ്ങൽ ശേഷി മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് വൻ പുരോഗതിയ്ക്കും എട്ട് ശതമാനം സാമ്പത്തിക വളർച്ചയ്ക്കും ഇടയാക്കും പാപ്പരത്ത മാനദണ്ഡങ്ങൾ ചരക്കു സേവനനികുതി നോട്ട് റദ്ദാക്കൽ ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവയിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഏകീകരിക്കാനായത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ ശേഷിയും പ്രതിസന്ധികളും കണ്ടറിയാൻ സഹായകമായി

വ്യക്തമാക്കി

ബി

ഭർത്താവിന് കേസുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെത്തുടർന്നാണ് മഞ്ജു വർമ്മ സാമൂഹ്യക്ഷേമവകുപ്പിമന്ത്രി സ്ഥാനം രാജിവെച്ചത്

ശാസ്ത്രസാങ്കേതിക വിദ്യ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

എ അധ്യക്ഷയുടെ മരുമകൻ റോബർട്ട് വാദ്രയും വിവാദ ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് ബി

ജെ പി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത്

ഇരുവരുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളും വിമാന ടിക്കറ്റുകളും ശ്രീപത്ര വെളിപ്പെടുത്തി

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗബഞ്ചിന്റേതാണ് വിധി

ജമ്മു കശ്മീരിൽ സുരക്ഷ് സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു വടക്കൻ കശ്മീരിലെ സോപോർ നഗരത്തിൽ ബാരാമുള്ളയിലാണ് സംഭവം മേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെ ശ്മശാനത്തിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരർ വെടി ഉതിർക്കുകയായിരുന്നു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് രണ്ട് ഭീകരരെ വധിച്ചത് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്

സുരക്ഷാ മുൻ കരുതലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു

സ്ഥാനാർത്ഥികൾക്കും സമ്മതിദായകർക്കും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം രാഷ്ട്രീയ പരിഗണനകളില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്നതെന്ന് ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി ബി

സുബ്രഹ്മണ്യൻ ശ്രീനഗറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

സി പി ഡി പി സി

എം എന്നീ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പ്രത്യേകിച്ച് പ്രഭാവമൊന്നും ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സുബ്രഹ്മണ്യൻ അറിയിച്ചു

ജാർഖണ്ഡിലെ റാഞ്ചിയിൽ കഴിഞ്ഞ ദ്ദിവ്സമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാട്ടന്റ ച്ചെയ്തത്

സഖ്യത്തിലെ എല്ലാ അംഗരാജ്യങ്ങളിലെ വീടുകളിലും വെളിച്ചും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അന്താരാഷ്ട്ര സൌരോർജ്ജസഖ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്

ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഭാരോദ്ധഹന ലോക ചാമ്പ്യൻ മീരാഭായ് ചാനുവും രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ഏറ്റുവാങ്ങി

വിജയ്ശർമ എ ശ്രീനിവാസ റാവു എന്നിവരുൾപ്പെടെ എട്ട് പേർക്ക് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരവും നാല് പേർക്ക് ധ്യാൻചന്ദ് പുരസ്കാരവും രാഷ്ട്രപതി സമ്മാനിച്ചു

അസുഖബാധയ്ക്ക് തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു

ആകാശവാണിയിലും ദൂരദർശനിലും കായിക്ട്രോക്ത്തിന്റെ ശബ്ദം അദ്ദേഹമായിരുന്നു ജസ്ദേവിന്റെ വിയോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി രാജ്യവർധൻ രാത്തോഡ് അനുശോചനമറിയിച്ചു